പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

വ്യോമസേനയുടെയും താൽപര്യങ്ങൾ യ്യു

എ ഗവൺമെന്റ അവഗണിച്ചുവെന്ന് രാജ്യരക്ഷാമന്ത്രി നിർമലാ സീതാരാമൻ

നിർമ്മാണം ഇരു രാഷ്ട്രങ്ങളിലേയും പ്രധാനമന്ത്രിമാർ ചേർന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു

ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഡി

ബനാറസ് ഹിന്ദു സർവകലാശാലയെ മെഡിക്ക്ൽ ഹ്ബ്ബായി വികസിപ്പിക്കുന്നതിന് കേന്ദ്രഗവൺമെന്റ് ലക്ഷ്യമിടുന്ന്തായും അദ്ദേഹം പറഞ്ഞു

പ്രവാസി ഭാരതീയ ദിവസ് അടുത്ത വർഷം കാശിയിൽ നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും അവിടേയ്ക്കായിരിക്കുമെന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു പ്രവാസി സഹോദരന്മാർക്ക് നമ്മുടെ സാംസ്ക്കാരിക പൈതൃകം അനുഭവവേദൃമാക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആയുഷ്മാൻ ഭാരതുമായുള്ള സഹകരണത്തിന് പ്രധാനമന്ത്രി തദവസരത്തിൽ യു

എല്ലിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഉള്ള താല്പര്യം മുൻ യു

എ ഗവൺമെന്റ് അവഗണിച്ചതായി രാജ്യരക്ഷാ മന്ത്രി നിർമലാ സീതാരാമൻ കുറ്റപ്പെടുത്തി ന്യൂഡൽഹിയിൽ ഒരു വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി

എച്ച്

എല്ലിനെ ശക്തിപ്പെടുത്തേണ്ടത് മുൻ യു

എ ഗവൺമെന്റിന്റെ കർത്തവൃമായിരുന്നു എന്നു പറഞ്ഞ കേന്ദ്രമന്ത്രി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ റഫാൽ നിർമ്മാതക്കളായ ഡെസോൾട്ടിന് എച്ച്

എല്ലുമായി ഒരു സംരംഭം കൂടുതൽ സന്തോഷകരമായിരുന്നേ എന്നും പറഞ്ഞു

എല്ലുമായി ചേർന്നുള്ള നിർമ്മാണത്തിൽ താത്പരൃമില്ലാത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവർണമെന്റ് കരാറിൽ നിന്നും അത് വിട്ടുകളയുകയായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഗവർൺമെന്റിനെതിരെ ഉന്നയിക്കുന്നതെന്ന് അവർ പറഞ്ഞു

എ ്ട്രിപ്പൺമെന്റ് കൊണ്ടുവന്ന കരാറെന്നും അവർ പറഞ്ഞു ന്യൂര്ത്ത്ത് റഫാൽ കരാർ സംബന്ധിച്ച് കേന്ദ്രഗവൺമെന്റ് വിവരങ്ങൾ ്മറച്ചു്വെയ്ക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ്കി

എന്തുകൊണ്ട് ഒരു സംയുക്ക് പാർലമെന്ററി സമിതി അന്വേഷണത്തിൽ നിന്നും ഗവൺമെന്റ് ഒഴിഞ്ഞുമാറുന്നുവെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു

കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുള്ളതിനാൽ അഡ്വ

ശർമ്മയുടെ ആവശ്യപ്രകാരം വാദം കേൾക്കുന്നത് ക് നീട്ടുകയായിരുന്നു ജസ്റ്റിസുമാരായ രഞ്ജൻ ഗോഗോയ് നവീൻ സിൻഹ കെ

ജോസഫ് എന്നിവർ അടങ്ങുന്ന ബഞ്ചാണ് കേസ് പരിണിക്കുന്നത്

ഇന്തോ ബംഗ്ലാ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പദ്ധതി സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു

ഡാക്കാ ടോംഗി ജോയ്ദേബ്പൂർ റെയിവേ പദ്ധതി പരസ്പരം ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും റവന്യൂ വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏപ്രിലിൽ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ ധാക്ക സന്ദർശന വേളയിലാണ് ഇരു രാജൃങ്ങളും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്

നിലവിൽ ടാർ കിലോമീറ്റർ ദൂരെ നിന്നും റെയിൽ മാർഗ്ഗം ഡീസൽ എത്തിക്കുന്നതിനുള്ള ബദൽ പദ്ധതിയാണിത്

രണ്ട് വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് വരുന്ന ഒക്ടോബർ രണ്ടാം തീയതിയാണ് തുടക്കം കുറിക്കുന്നത്

രാജ്യരക്ഷാ മന്ത്രി നിർമലാ സീതാരാമൻ അധ്യക്ഷത വഹിച്ച ഡി

മുൻപ് വാങ്ങിയ ആകാശ് മിസൈലിന്റെ അപ്ഗ്രൈഡഡ് ഇനമാണ് ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്

ആർ ഡി ഒയാണ് ഈ ഉപകരണം വികസിപ്പിച്ചിരിക്കുന്നത്

ശിവകുമാറിനുക് മറ്റ് ചിലർക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് വിഭാഗം കള്ളപ്പൂണ്റ് ഉപ്ളുപ്പിക്കലിന് കേസ് രജിസ്റ്റർ ചെയ്തു നികുതി വെട്ടിപ്പ് ഹീവാല ഇടപാടുകൾ എന്നിവയും ഉൾപ്പെടുത്തിയ്യിട്ടൂണ്ട് ഈ വർഷം ആദ്യം ആദായനികുതി വകുപ്പ് ശ്രീപ്പ്കുമാറിനെതിരെ ബംഗ്ലരൂവിലെ പ്രത്യേക കോടതിയിൽ കേസ് ഫയ്ൽ ചെയ്തിരുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി

ജി

വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചാണ് ചർച്ച നടന്നത്

ഉത്തര പശ്ചിമ സിറിയ ലക്ഷമാക്കി നാല് ഇസ്രേയേലി യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ ഇടയിൽപ്പെട്ടതാണ് തങ്ങളുടെ വിമാനമെന്ന് റഷ്യ പറഞ്ഞു

വിശ്ദ്മാൃയ വാദത്തിനും ഇക്കാരൃത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കുന്നതിനുമാണ് കേസ് മാറ്റിയത് നാളെ രാവിലെ ചോദ്യം ഉച്ചുയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകൾ പറഞ്ഞു അതിനിടെ കൊച്ചിയിൽ കന്യാസ്ത്രികൾ നടത്തിവരുന്ന നിരാഹാര സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നു നിരവധി പേരാണ് സമരത്തിന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്

സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കായി നടത്തിയ സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജൃമൊട്ടാകെ ശുചിയാക്കുന്നതിനുള്ള പ്രയത്നം തുടരുകയാണെന്നും ഇതിന്റെ ഭാഗമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി നിരവധി ശൌചാലയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞതായും ശ്രീ രവിശങ്കർ പ്രസാദ് കൂട്ടിച്ചേർത്തു